പദ്ധതികൾ പ്രധാന മന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഇന്ത്യയ്ക്ക് നിർണായകൃസ്ഥാന്മാണുള്ളതെന്ന് പ്രധാനമന്ത്രി

തുടർച്ചയായി കുറയുന്നു

കൈമാറാൻ തയ്യാറാണെന്നും പട്ടാള ഭരണകൂടം

ഉജ്ജ്വല വിജയം

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി

വൈകുന്നേരം വിദൂര ദൃശ്യ സംവാദ സംവിധാനത്തിലൂടെയാണ് പരിപാടി

നാഗപട്ടണത്തിലെ കാവേരി നദീതട എണ്ണ ശുദ്ധീകരണ് ശാലയുടെ തറക്കല്ലിടൽ ചടങ്ങും പ്രധാനമന്ത്രി നിർവ്വഹിക്കും രാജ്യത്ത് ഊർജരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ പദ്ധതികൾ ഈ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ പങ്കെടുക്കും

എൻ ജി സി ഗൃാസ് ഫീൽഡുകളിൽ നിന്നും ഇന്ധനം വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്ക് എത്തിച്ചുനൽകാൻ ഇതിലൂടെ സാധിക്കും

ഒ

എൽ സി

നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രിട്ടീരെ സജീവമാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലീമായ്താണെന്നും ശ്രീ മോദി ട്വിറ്ററിൽ അഭിപ്രായപ്പെട്ടു

നിലവിൽ ഫൈസർ ബയോ എൻടെക്ക് എന്നിവയുടെ വാക്സിനുകൾക്ക് മാത്രമാണ് ഹോങ്കോങ്ങിൽ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിട്ടുള്ളത് സൈനോവാക്കിന് ലോകാരോഗൃ സംഘടന ഇതുവരെ അനുമതി നൽകിയിട്ടില്ല

ജപ്പാനിൽ ആരോഗൃ പ്രവർത്തകരാണ് ആദൃം വാക്സിൻ കുത്തിവയ്പിന് വിധേയരാകുന്നത്

തദ്ദേശ ്രഭർണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ സുതാര്യമായുട്ടു ലൂളിതമായ നടപടിക്രമങ്ങളിലൂടേയും ജനങ്ങൾക്ക് ഇ ഷവാന്റ് പ്പോർട്ടലിലൂടെ ലഭ്യമാകും

കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാരിന്റെ മുൻഗണനകളും ധനമന്ത്രി വിശദീകരിച്ചു ബോർഡ് അംഗങ്ങൾ ധനമന്ത്രിയെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും വിവിധ വിഷയങ്ങളിലെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു ബാങ്കുകളിലെ പരാതി പരിഹാര സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു

ഭാവിയെ മെച്ചപ്പെട്ട സാധാരണ നിലയിലേയ്ക്ക് രൂപപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ആശയം

ഓൺലൈനായാണ് ചടങ്ങുകൾക്ക് തുടക്കമിടുന്നത്പു ഇന്തൃയുടെ കിഴക്കൻ ഭാഗങ്ങളിലേയ്ക്ക് തടസ്സമില്ലാത്ത് യാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധത്തി ബ്രഹ്മപുത്ര നദിക്കും ബരാക് നദിക്കും ചുറ്റുമുള്ള ശ്യിപ്പിധ വികസന പ്രവർത്തനങ്ങൾ കൂടി അടങ്ങുന്നതാണ് പദ്ധതി

നാരായണ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായി ഇന്നലെ ഒരു കോൺഗ്രസ് എം എൽ എ കൂടി രാജി വച്ചതോടെയാണ് നാരായണ സ്വാമി സർക്കാർ പ്രതിസന്ധിയിലായത് സർക്കാരിന്റെ കാലാവധി ജൂൺ എട്ടിന് അവസാനിക്കാനിരിക്കെയാണ് ഭരണ പ്രതിസന്ധി കാമരാജ് നഗർ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം

എ ജോൺകുമാറാണ് ഇന്നലെ രാജി സമർപ്പിച്ചത് രണ്ട് ദിവസം മുമ്പ് പൊതുമരാമത്ത് മന്ത്രി എ നമശിവായവും എം

തീപ്പായിന്തൻ എന്നിവരും രാജി വച്ച് ബി ജെ

മുൻ ആരോഗൃ മന്ത്രി മല്ലാഡി കൃഷ്ണറാവു തിങ്കളാഴ്ച രാജി സമർപ്പിച്ചിരുന്നു കോൺഗ്രസ് എം എൽ

പട്ടാള അട്ടിമറിയിലൂടെ പുറത്തായ നേതാവ് ഔങ്ങ് സാങ്ങ് സൂചിക്കെതിരെ പോലീസ് അധിക കുറ്റം ചുമത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം

അത്നെസ്സ്യം ഔങ്ങ് സാങ്ങ് സൂചിക്കെതിരെയുള്ള പ്രക്ടിമിനൽ കുറ്റങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്ര്ബീട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ അഭിപ്രായപ്പെട്ടു

അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ച വൃക്തിയാണ് അവിജിത് റോയ് എന്ന് വിധി് പ്രസ്താവിച്ച സ്വാതന്ത്രൃം തകർക്കുകയായിരുന്നു കൊലപാതകത്തിന്റെ ലക്ഷ്യം പ്രത്യേക ട്രൈബ്യൂണലിന്റെ രണ്ടാമത്തെ വിധിയാണിത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എഴുതിയിരുന്ന റോയ് ബംഗ്ലാദേശിൽ ജനിച്ച് യു

അവിജിത് റോയുടെ കൊലപാതകത്തെ നേരത്തെ യു

ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശക്തമായ രീതിയിലാണ് ഇന്ത്യ പകരം വീട്ടിയത്

ഇതോടെ നാല് മത്സരങ്ങളുളള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ ജയവുമായി ഒപ്പത്തിനൊപ്പമെത്തി

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു വീണ്ടും തോൽവി ഹൈദരാബാദ് എഫ് സി യോട് ഏകപക്ഷീയമായ നാലു ഗോളുകളുടെ തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സിനുണ്ടായത്

ആദ്യ പകുതിയിൽ ് ഒരു ഗോളിനും വഴങ്ങാതിരുന്ന ശേഷമാണ് കേരളം രണ്ടാം പകുതിയിൽ മോശം പ്രകടനം നടത്തി തോൽവി ഏറ്റുവാങ്ങിയത്